പരിപാടിയ്ക്ക് ഇന്ന് തുടക്കം ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും

രൂപയുടെ മൂല്യത്തകർച്ചു വർദ്ധിച്ചുവരുന്ന ധനകമ്മി പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വൃവിധ നടപടികൾ പ്രഖ്യാപിച്ചു

അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം

ഇന്ന് മാലെദ്വീപുമായി ഏറ്റുമുട്ടും ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ശുചിത്വ പൂർണമായ ഇന്ത്യ എന്ന രാഷ്ട്രപിതാവിന്റെ സ്വപ്നം സഫലീകരിക്കുക എന്ന ലക്ഷ്യത്ത്യോടെയാണ് പരിപാടി നടക്കുന്നത് സ്വച്ഛതാ ഗ്രാമസഭകൾ ് സ്റ്റ്വാ് ദിവസ് റെയിൽവേ സ്വച്ഛതാ ദിവസ് എന്നിവയും പരിപ്പിടിയോട് അനുബന്ധിച്ച് നടത്തും

രാജ്യത്തെ രണ്ടരലക്ഷം പൃഞ്ചായത്തുകളാണ് സ്വച്ഛതാ ഗ്രാമസഭകളും സേവാ ദിവസും നടത്തുക്കാ ഒക്ടോബർ രണ്ടിന് നാലാം വാർഷികം ആഘോഷിക്കുന്ന സ്വച്ഛ്ഭാരത് പദ്ധതിക്ക് സ്വച്ഛത ഹി സേവ പ്രചാരണപരിപാടി ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും വിവിധ കരാറുകളിലും ഒപ്പുവയ്ക്കും സർബിയൻ ദേശീയ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും

രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി റിസർവ്വ് ബാങ്ക് ഗവർണ്ണർ ഊർജ്ജിത് പട്ടേൽ ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ വിവരിച്ചു കേന്ദ്രം കൈക്കൊണ്ട നടപടികൾ സമ്പദ് വൃവസ്ഥയിൽ ഗുണപരമായി ഭവിക്കുമെന്ന് സാമ്പത്തിക കാര്യ സെക്രട്ടറി എസ്

ഗാർഗ് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

മസാല ബോണ്ടുകളിൽ നികുതി ഏർപ്പെടുത്തുന്നത് അടുത്തവർഷം മാർച്ച് വരെ നിർത്തിവയ്ക്കും വിദേശ നിക്ഷേപ ചട്ടത്തിൽ ഇളവ് വരുത്തുക അത്യാവശ്യമല്ലാത്ത വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയ നടപടികൾ ഇതിന്റെ ഭാഗമായി കൈക്കൊള്ളും നടപടികളുടെ ഭാഗമായി അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന വായ്പകളുടെ പരിധി പുനർ നിർണ്ണയിക്കും

മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വളരെ ഉയരത്തിലാണ് കൂടുതൽ നടപടികൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യുമെന്ന് അരുൺ ജയ്റ്റ്ലി അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

മോസ്കോയിൽ റഷ്യൻ ഉപ പ്രധാനമന്ത്രി യൂറി ബൊറിസോവുമായി നടത്തിയ ഇന്ത്യ റഷ്യ ഗവൺമെന്റ്തല ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ബഹിരാകാശ മേഖലയിൽ റഷ്യയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്തൃ താൽപര്യപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു വ്യാപാരം സാമ്പത്തികം ശാസ്ത്രം സാങ്കേതികവിദ്യൂ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുനേത്രാക്കളും ചർച്ച ചെയ്തു

ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ മാനവിക വികസന സൂചിക മൂല്യം ശരാശരിയെക്കാൾ ഉയരത്തിലാണ്

ദീർഘവും ആരോഗ്യമുള്ളതുമായ ജീവിതം പഠനത്തിനുള്ള സാഹചര്യം ജീവിതനിലവാരം എന്നീ ഘടകങ്ങൾ ആധാരമാക്കിയാണ് എച്ച്

നോർവെ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ എന്നിവയാണ് പട്ടികയിൽ ആദ്യ മൂന്നു സ്ഥാനങ്ങളിലുള്ളത്

അ്തു്ണാചൽപ്രദേശിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടാക്കി ഇറ്റാനഗറിൽ രണ്ട് പേർ മരിക്കുകയും മൂന്നുപേരെ കാണാതാവുകളും ചെയ്തു നിരവധി വീടുകളും തകർന്നിട്ടുണ്ട് അരുണാചൽപ്രദേശിൽ എൻ

എഫ് സംഘം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്

പ്രളയത്തെ തുടർന്ന് കേന്ദ്രം അനുവദിച്ച അരി സംസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു

ഐ

ഇന്നലെ പുറത്തുവിട്ട എച്ച് ഐ

ഐ

ഐ

എച്ച് ഐ

ഐ പി ബാധ തടയാൻ ആകുമെന്ന ലക്ഷ്യം രാജ്യത്തിന് കൈവരിക്കാനാകില്ലെന്നും എൻ

ഒ റിപ്പോർട്ടിൽപ്പർയുന്നു

ഇന്ത്യയുൾപ്പെടെ ആറ് ടീമുകളാണ് മത്സരത്തിനുള്ളത് ആദ്യ മത്സരം ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ശിഖർ ധവാനാണ് ഉപനായകൻ